എം കർണാടകത്തിൽ വിമത എം എൽ എ മാർ കോൺഗ്രസ് നിയ മസഭാകക്ഷിയോഗത്തിൽ പങ്കെടുത്തില്ല രാഷ്ട്രീയ പ്രതി സന്ധി രൂക്ഷം

പി എം

ജയിലുകൾ തിരുത്തൽ കേന്ദ്രങ്ങളാവണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

പി രാമകൃഷ്ണൻ ലോകകപ്പ് ക്രിക്കറ്റ് ആദ്യ സെമി ഇന്ന്

കോൺഗ്രസ് ജനതാദൾ എസ് സഖ്യഗവൺമെന്റിനെ സംര ക്ഷിക്കാൻ അണിയറനീക്കങ്ങൾ സജീവമാണെങ്കിലും ഫലം കാണുന്നില്ലെന്നാണ് റിപ്പോർട്ട്

എൽ എ മാരുടെ രാജിക്കാര്യ ത്തിൽ സ്പീക്കർ കെ ആർ രമേശ് കുമാർ ഇന്ന് എടുക്കുന്ന തീരു മാനം നിർണായകമാകും നിയമവിദദ്ധരുമായി ആലോചിച്ച് ഭര ണഘടന പ്രകാരം തീരുമാനമെടുക്കുമെന്ന് സ്പീക്കർ ബംഗലൂരു വിൽ പറഞ്ഞു നിയമാനുസൃതമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടു പോകുമെന്നും സ്പീക്കർ പറഞ്ഞു

എൽ

സ്പീക്കറുടെ തീരുമാനം അനുസരിച്ചായിരിക്കും തുടർനീക്കങ്ങളെന്ന് ഇവരുമായി ബന്ധ പ്പെട്ട കേന്ദ്രങ്ങൾ മുംബൈയിൽ അറിയിച്ചു രാജി അംഗീകരിച്ചാൽ ബംഗലൂരുവിലേക്ക് തിരികെ പോകുമെന്നും അതല്ലെങ്കിൽ ഗോവ യിലേക്ക് പോകുമെന്നും അവർ അറിയിച്ചു കോൺഗ്രസിലെ പത്തും ജെ ഡി എസിലെ രണ്ടും രണ്ട് കക്ഷിരഹിത എം എൽ എ മാരുമാണ് സംഘത്തിലുള്ളത് അതിനിടെ പ്രതിസന്ധി ചർച്ചചെയ്യാൻ രാവിലെ കോൺഗ്രസ് നിയമസഭാകക്ഷി യോഗം ചേർന്നു മുംബൈയിലേക്ക് പോയ എം

എ മാർ ഉൾപ്പെടെ വിമത എം

എ മാർ യോഗത്തിൽ പങ്കെടുത്തില്ലെന്നാണ് റിപ്പോർട്ട് യോഗത്തിൽ പങ്കെടുക്കാൻ നിയ മസഭാകക്ഷിനേതാവ് സിദ്ധരാമയ്യ വിപ്പ് നൽകിയിരുന്നു പങ്കെടു ക്കാത്ത സാഹചര്യത്തിൽ വിമതരെ അയോഗ്യരാക്കാൻ നടപടി സ്വീകരിക്കാനും യോഗം തീരുമാനിച്ചു കർണാടകത്തിൽ അടുത്തയാഴ്ച ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് ബി

കൂടുതൽ ഭരണ പക്ഷ എം എൽ എ മാർ രാജിവെക്കുമെന്ന് പാർട്ടി നേതാവ് ശോഭ കരന്തലജെ എം

കുമാരസ്വാമി ഗവൺമെന്റ് രാജിവെക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു കർണാടകത്തിൽ സഖ്യ ഗവൺമെന്റ് തുടരു മെന്ന് സംസ്ഥാനത്തിന്റെ ചുമതല വഹിക്കുന്ന എ ഐ

സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അവകാശപ്പെട്ടു ഗവൺമെന്റിന് നിലവിൽ പ്രതിസന്ധിയില്ലെന്ന് അദ്ദേഹം ബംഗ ലൂരുവിൽ മാധ്യമങ്ങളോട് പറഞ്ഞു

എൽ എ മാർ കോൺഗ്രസ് വിട്ടുപോകില്ലെന്നും വെള്ളിയാഴ്ച നിയമസഭ ചേരു മ്പോൾ ഇക്കാര്യം വ്യക്തമാകുമെന്നും വേണുഗോപാൽ അറിയി ച്ചും കർണാടക പ്രശ്നത്തിൽ കോൺഗ്രസ് അംഗങ്ങളുടെ ബഹ ളത്തെ തുടർന്ന് രാജ്യസഭ ഉച്ചവരെ നിർത്തിവെച്ചു കോൺഗ്ര സിലെയും ജെ ഡി എസിലെയും എം

നരേന്ദ്രമോദി രണ്ടാമതും അധികാരത്തിൽ വന്നശേഷം ആദ്യമായാണ് രാജ്യസഭാ സമ്മേളനം നിർത്തിവെ ക്കുന്നത് പശ്ചിമബംഗാളിലെ ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് തൃണമൂൽ കോൺഗ്രസിലെ അംഗങ്ങളും നടുത്തളത്തിലിറങ്ങി ബഹളം വെച്ചു കർണാടക പ്രശ്നത്തിൽ ലോക്സഭയിൽ വീണ്ടും അടിയ ന്തരപ്രമേയ നോട്ടീസ് കോൺഗ്രസ് നേതാക്കളായ അധിർ രഞ്ജൻ ചൌധരിയും കൊടിക്കുന്നിൽ സുരേഷുമാണ് നോട്ടീസ് നൽകിയ ത്

ജെ പി എം

രാജ്യസഭ എം പി മാർ സംഘടനാതലത്തിൽ ബി

പി ദുർബ ലമായ മണ്ഡലങ്ങളിൽ പര്യടനം നടത്താനും അദ്ദേഹം ആവശ്യ പ്പെട്ടിട്ടുണ്ട് ഗ്രാമങ്ങളുടെ പുനരുജ്ജീവനത്തിനും സ്വയംപര്യാപ്ത തയ്ക്കും സിറോ ബജറ്റ് കൃഷി രീതികൾ അനുവർത്തിക്കുന്നതിനും സഹായിക്കുന്ന പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കാനാണ് എം പി മാർക്ക് നിർദേശം നൽകിയിരിക്കുന്നത് ജയിലുകൾ തിരുത്തൽ കേന്ദ്രങ്ങൾ ആവണമെന്നതാണ് ഗവർണമെന്റ് സമീപനമെന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു മലമ്പുഴ മന്തക്കാടിൽ പാലക്കാട് ജില്ലാ ജയിലിന്റെ ഉൽഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി കുറ്റബോധത്തോടെ തെറ്റുകൾ തിരുത്താൻ തയ്യാറാവുന്ന തടവുകാർക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും സൌകര്യങ്ങളും ജയിലുകളിൽ ഉറപ്പുവരുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതേസമയം ജയിലുകൾ കേന്ദ്രീകരിച്ചു കുറ്റകൃത്യങ്ങൾ നടത്തുന്നവരോടും അതിനു കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥരോടും ഗവർണമെന്റ് ദയ കാണിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ജയിലുകളുടെ നവീകരണത്തിന് ഗവർണമെന്റ് വിവിധ പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് ജയിലുകളെ കോടതികളുമായി ബന്ധിപ്പിക്കുന്ന പ്രവർത്തികൾ പുരോഗമിക്കുകയാണെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു ജയിൽ ഉദ്യോഗസ്ഥക്ക് വയർലസ് സംവിധാനം ഉടൻ നിലവിൽ വരും ജയിലുകൾക്കുള്ളിൽ തടവുകാർ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നത് തടയാൻ മൊബൈൽ ജാമറുകൾ സ്ഥാപിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ചടങ്ങിൽ മന്ത്രി എ

ബാലൻ ജയിൽ ഡി

പി ഋഷിരാജ് സിങ് എന്നിവർ പ്രസഗിച്ചു സംസ്ഥാനത്തെ മുഴുവൻ എക്സൈസ് സേനാംഗങ്ങൾക്കും തോക്കുപയോഗിക്കാൻ പരിശീലനം നൽകാൻ തീരുമാനിച്ചതായി മന്ത്രി ടി

ചെക്പോസ്റ്റുകൾ കൂടുതൽ ശക്തമാക്കാനും എക്സൈസ് കമ്മീഷണറുടെ നിയന്ത്രണത്തിൽ പുതിയൊരു പ്രത്യേക സ്കാഡ് രൂപീകരിക്കാനും നടപടിയെടുക്കുമെന്ന് അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു സംസ്ഥാന എക്സൈസ് അക്കാദ മിയിൽ പരിശീലനം പൂർത്തിയാക്കിയ സിവിൽ എക്സൈസ് ഓഫീസർമാരുടെ പാസിങ്ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി വിദ്യാലയ പരിസരങ്ങളും ഹോസ്റ്റലുകളും കേന്ദ്രീകരിച്ച് ലഹ രിസാധനങ്ങൾ വിതരണം ചെയ്യുന്നവർക്കെതിരെ കടുത്ത നടപടി യെടുക്കും ഇക്കാര്യത്തിൽ അധ്യാപകരും രക്ഷിതാക്കളും പി

എ യും പരിസരത്തെ ജനങ്ങളും ജാഗ്രതയോടെ ഇടപെടണമെന്നും ടി

തൃശൂരിലെ എക്സൈസ് അക്കാദമി ആധുനിക സൌകര്യങ്ങ ളോടെ ദേശീയ നിലവാരം പുലർത്തുന്ന പരിശീലന കേന്ദ്രമാക്കി മാറ്റും വിദഗ്ദ്ധ പരിശീലനം ലഭിക്കാത്ത ഒരാൾപോലും എക്സൈ സിൽ ഉണ്ടാകരുതെന്നാണ് ഗവൺമെന്റ് നിലപാടെന്നും മന്ത്രി പറ ഞ്ഞു കാരുണ്യ ബെനവലന്റ് പദ്ധതി തുടരാനാവില്ലെന്ന് മന്ത്രി ഡോ

ആരോഗ്യ സുരക്ഷാ പദ്ധതിയും കാരുണ്യ ബെനവലന്റ് പദ്ധതിയും ഒന്നിച്ച് കൊണ്ടുപോകാനാവി ല്ലെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു ഇൻഷൂറൻസ് പദ്ധതി യിൽ ഉൾപ്പെടാത്തവർക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ ലഭ്യമാക്കാൻ ഉടൻ ഉത്തരവിറക്കും സംസ്ഥാന ഗവൺമെന്റിന്റെ ആരോഗ്യ ഇൻഷൂറൻസ് പദ്ധതി കാരുണ്യ എന്ന പേരിൽ ഇപ്പോൾ നടപ്പാക്കിവരുന്നുണ്ട് ലോകകപ്പ് ക്രിക്കറ്റ് ആദ്യ സെമിയിൽ ഇന്ത്യ ഉച്ച കഴിഞ്ഞ് ന്യൂസിലാന്റിനെ നേരിടും

മഴ പെയ്യുമെന്ന കാലാവസ്ഥാ പ്രവചനം ക്രിക്കറ്റ് പ്രേമികളെ ആശങ്ക യിലാക്കിയിട്ടുണ്ട് മഴമൂലം മത്സരം മുടങ്ങിയാൽ റിസർവ് ദിന മായ നാളെ ഇരുടീമുകളും വീണ്ടും ഏറ്റുമുട്ടും നാളെയും കളി മുടങ്ങിയാൽ ഇന്ത്യ സെമിയിൽ പ്രവേശിക്കും റൌണ്ട് റോബിൻഘട്ടത്തിൽ ന്യൂസിലാന്റിനേക്കാൾ പോയന്റും മെച്ചപ്പെട്ട റൺറേറ്റും കണക്കിലെടുത്താണ് ഇന്തൃ സെമിപ്രവേശം മത്സരം ആരംഭിച്ചശേഷം കാലാവസ്ഥമൂലമോ മറ്റോ തടസ്സ മുണ്ടായി ആ ദിനം നഷ്ടമായാൽ അതിന്റെ തുടർച്ചയായാണ് തൊട്ടടുത്ത ദിവസമായ റിസർവ് ദിനത്തിൽ കളി നടക്കുക

ബോർഡിന്റെ കാര്യക്ഷമത കൂട്ടണ മെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ജീവനക്കാരെ പുനർ വിന്യ സിക്കണമെന്നും കമ്മീഷൻ നിർദേശിച്ചു

റബ്ബറിന്റെ ഉൽപാദനച്ചെലവ് കുറച്ച് ഉൽപാദനം വർധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ റബർ ഉൽപാദക സഹകരണ സംഘങ്ങളുടെ സംയുക്ത സംരംഭത്തിന് റബർ ബോർഡ് നട പടി ആരംഭിച്ചു തുടക്കത്തിൽ ടാപ്പ് ചെയ്യാതെ കിടക്കുന്ന റബർ തോട്ടങ്ങൾ ഏറ്റെടുത്ത് സംയുക്ത സംരംഭങ്ങളുടെ നേതൃത്വത്തിൽ ടാപ്പ് ചെയ്യുകയാണ് ലക്ഷ്യം വിലയിടിവിനെ തുടർന്ന് സംസ്ഥാനത്ത് നിരവധി റബർ തോട്ടങ്ങൾ ടാപ്പ് ചെയ്യാതെ കിടക്കുന്നുണ്ട് ഉൽപാദന വർധനവിലൂടെ മാത്രമേ സ്വാഭാവിക റബറിന്റെ ഇറക്കുമതി തടയാൻ കഴിയൂ എന്നതിനാലാണ് റബർ ബോർഡ് ഈ മാർഗം ആരായുന്നത് സംസ്ഥാനത്തൊട്ടാകെ ഒന്നേകാൽ ലക്ഷം ഹെക്ടർ റബർ തോട്ടങ്ങൾ ടാപ്പ് ചെയ്യാതെ കിടക്കുന്നതായി റബർ ബോർഡ് കേന്ദ്രങ്ങൾ കോട്ടയത്ത് പറഞ്ഞു മുസ്ലിം ലീഗ് സംസ്ഥാന കൌൺസിൽ അംഗവും വ്യവസായ പ്രമുഖനുമായ കണ്ണൂർ കടവത്തൂരിലെ പി

അസുഖത്തെ തുടർന്ന് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം പാർക്കോ കമ്പനി പാർക്കോ എഡുക്കേഷണൽ ചാരിറ്റബ്ൾ ട്രസ്റ്റ് പാർക്കോ ഹോസ്പിറ്റൽ ആന്റ് മെഡിക്കൽ റിസേർച്ച് സെന്റർ മൌണ്ട് ഗൈഡ് ഇന്റർനേഷണൽ സ്കൂൾ എന്നിവയുടെ ചെയർമാനാ യിരുന്നു

എം കോളേജ്പ്രസിഡന്റ് തലശ്ശേരി സി എച്ച് സെന്റർ പ്രസിഡന്റ് ശിഹാബ്തങ്ങൾ ഫൌണ്ടേഷൻ പ്രസിഡന്റ് തുടങ്ങിയ സ്ഥാനങ്ങൾ വഹിച്ചു വരിക യായിരുന്നു ഖബറടക്കം ഇന്ന് വൈകിട്ട് നാല് മണിക്ക് കടവത്തൂർ വലിയ ജുമാഅത്ത് പള്ളിയിൽ നടക്കും പൊതുജനങ്ങളിൽ ജലസംരക്ഷണം മഴവെള്ള സംഭരണം എന്നിവയുടെ പ്രാധാന്യം ബോധ്യപ്പെടുത്തു ന്നതിന് കോഴിക്കോട് തിരുവണ്ണൂരിൽ സെമിനാർ സംഘടിപ്പിച്ചു ഖാദിഗ്രാമവ്യാവസായ കമ്മീഷന്റെ സ്വച്ഛതാമിഷൻ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച സെമിനാർ ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു

കൊല്ലം ഓച്ചിറ അറബിക് കോളേജിലെ ഒരു വിദ്യാർത്ഥിക്ക്കൂടി ഡിഫ്തീരിയ സ്ഥിരീകരിച്ചു വിദ്യാർത്ഥിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിൽ പ്രവേശിപ്പിച്ചു കോളേജിലെ ഒരു വിദ്യാർത്ഥിക്ക് നേരത്തെ രോഗം സ്ഥിരീകരിച്ചിരുന്നു ഇയാൾ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്

നെടുങ്കണ്ടം ഉരുട്ടിക്കൊലക്കേസിൽ അറസ്റ്റിലായ രണ്ടാം പ്രതി എ

ഐ സി ബി റജിമോൻ മൂന്നാംപ്രതി പൊലീസ് ഡ്രൈവർ പി

എ സാബുവിനെ ഒരുദിവസത്തേക്ക് പൊലീസ് കസ്റ്റഡിയിൽ വാങ്ങി കാസർകോട് ജില്ലയിലെ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് യാത്രാപാസുകൾ അത് സ്ഥാപന ങ്ങളുടെ മേധാവികൾ തന്നെ വിതരണം ചെയ്യണമെന്ന് ജില്ലാകല ക്ടർ ഡോ ഡി സജിത് ബാബുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സ്റ്റുഡന്റ്സ് ട്രാവൽസ് ഫെസിലിറ്റി യോഗം നിർദേശിച്ചു യാത്രാ പാസുകളുമായി ബന്ധപ്പെട്ട് നിലവിൽ പ്രശ്നങ്ങൾ നില നിൽക്കുന്ന സാഹചര്യത്തിലാണ് അതത് സ്കൂൾ കോളേജ് മേധാവികളോട് പാസ് വിതരണം ചെയ്യാൻ ആവശ്യപ്പെട്ടത് കൊച്ചിയിൽ ഗോശ്രീ ഒന്നാം പാലത്തിനു താഴെ ശക്തമായ കാറ്റിലും മഴയിലും പെട്ട് വഞ്ചിമറിഞ്ഞ് ഒരാളെ കാണാതായി രണ്ടുപേർ രക്ഷപ്പെട്ടു ഫയർഫോഴ്സ് തെരച്ചിൽ തുടരുകയാണ്